സംസ്ഥാനത്ത് അഞ്ച് നിയമസഭാ മണ്ഡലിങ്ങളിൽ ഉപതെര ഞ്ഞെടുപ്പ് പ്രചാരണം നാളെ വൈകിട്ട് അവ്വസാനിക്കും എല്ലാവർക്കും ഇന്റർനെറ്റ് സൌകര്യം നൽകുന്നതിന് കെ ഫോൺ പദ്ധതിയുടെ അടിസ്ഥാന പ്രവൃത്തികൾ ഉടൻ പൂർത്തിയാകുമെന്ന് മുഖ്യമന്ത്രി പ്രിണറായി വിജയൻ കൂടത്തായിയിലെ സിലിയെ കൊലപ്പെടുത്തിയ കേസിലും ജോളിയെ അറസ്റ്റ് ചെയ്യാൻ ക്രൈംബ്രാഞ്ചിന് കോടതിയുടെ അനുമതി ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റ് നാളെ ഝാർഖ ണ്ഡിൽ ആരംഭിക്കും സംസ്ഥാനത്ത് ഇന്നും കനത്തമഴയ്ക്ക് സാധ്യത ജാതി മ്ത സംഘടനകൾ പരസ്യമായി വോട്ടഭ്യർത്ഥിക്കുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീ സർ ടിക്കാറാം മീണ തിരുവനന്തപുരത്ത് പറഞ്ഞു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവും മാർഗനിർദ്ദേശങ്ങളും പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്നും ചട്ടങ്ങളുടെ ധാർമിക വശങ്ങൾ എല്ലാവരും പരിഗണിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

ജാതി സംഘടന കൾക്ക് രാഷ്ട്രീയം ഉണ്ടെങ്കിൽഡ അവർ രാഷ്ട്രീയപാർട്ടിയാ യാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് മതനിരപേക്ഷ പാരമ്പര്യത്തെ തകർക്കാൻ ആരും ശ്രമിക്കരു തെന്നും അതിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ കമ്മീഷന് ചുമ തലയുണ്ടെന്നും അതാണ് പാലിക്കുന്നതെന്നും വാർത്താസമ്മേള നത്തിൽ ടിക്കാറാം മീണ വ്യക്തമാക്കി വട്ടിയൂർകാവിലും കോന്നിയിലും ഇരട്ട വോട്ടുകൾ ഉണ്ടെന്ന പരാതി സംബന്ധിച്ച് കലക്ടർമാരോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും മീണ അറിയിച്ചു എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ജി സൂകുമാരൻനായർ യുഡിഎഫ് കൺവീനറെ പോലെ പ്രവർത്തിക്കുകയാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് ആരോപിച്ചു പാലാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തോടെ യുഡിഎഫ് തമ്മിലടിക്കുന്ന മുന്നണിയായി മാറിയെന്നും അതു മനസ്സിലാക്കിയാണ് സുകുമാരൻനായർ പ്രവർത്തിക്കുന്നതെ ന്നും കോടിയേരി പറഞ്ഞു സംസ്ഥാനത്തെ അഞ്ച് നിയമുസ്ഭാ മണ്ഡലങ്ങളിൽ ഉപതെര ഞ്ഞെടുപ്പ് പ്രചാരണം ഖ്കാട്ടിക്കലാശത്തിലേക്ക് കടക്കവേ കൂടു തൽ ഊർജ്ജിതമായി മഞ്ചേശ്വരം എറണാകുളം അരൂർ കോന്നി വട്ടിയൂർകാവ് മണ്ഡലങ്ങളിൽ നാളെ വൈകീട്ട് പ്രചരണം അവ സാനിക്കും തിങ്കളാഴ്ച് രാവിലെ എട്ടിന് വോട്ടെടുപ്പ് ആരംഭിക്കും അവസാനഘട്ട പ്രചരണത്തിനായി യുഡിഎഫ് എൽഡിഎഫ് എൻഡിഎ ്മുന്നണികൾക്കായി കേന്ദ്ര സംസ്ഥാന നേതാക്കളുടെ നീണ്ടനിരതന്നെ ദിവസങ്ങളായി പ്രചാരണരംഗത്ത് സജീവമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഐഎം സംസ്ഥാനസെ ക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ഉൾപ്പെടെ ഇടത് നേതാക്കൾ എൽഡിഎഫ് പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നു കോൺഗ്രസ് പ്രവർത്തകസമിതി അംഗങ്ങളായ എ കെ ആന്റ ണിയും ഉമ്മൻചാണ്ടിയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്ത ലയും ഉൾപ്പെടെ നേതാക്കളാണ് യുഡിഎഫിന് വേണ്ടി പ്രചാരണ ത്തിന്റെ ചുക്കാൻപിടിക്കുന്നത്

കേന്ദ്രമന്ത്രി വി മുരളീധരൻ കോന്നിയിൽ ഇന്ന് പ്രചാരണത്തിനെത്തും ശബരിമല ഉൾപ്പെടെ വിഷയങ്ങൾ പ്രചാരണത്തിന്റെ അവസാ നഘട്ടത്തിലും ഉയർത്തിക്കൊണ്ടുവരാനാണ് നേതാക്കൾ ശ്രമിക്കു ന്നത് ഇതോടൊപ്പം ഒട്ടനവധി വിവാദങ്ങളും ജാതി സംഘടനകളുടെ പിന്തുണയും പ്രചാരണായുധമാക്കുന്നുണ്ട് ജനവിധി അടുത്ത വ്യാഴാഴ്ച അറിയാം മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും നിയ്മസഭാ വോട്ടെ ടുപ്പ് തിങ്കളാഴ്ച നടക്കും

ഈ മണ്ഡല്ങ്ങളിലും പര സ്യപ്രചാരണം നാളെ വൈകിട്ട് അവസാനിക്കും

സംസ്ഥാനത്തെ എല്ലാവർക്കും ഇന്റർനെറ്റ് സൌകര്യം കിട്ടുന്ന തിന് വേണ്ടി ഗവൺമെന്റ് നടപ്പാക്കുന്ന കെ ഫോൺ പദ്ധതിയുടെ അടിസ്ഥാന പ്രവൃത്തികൾ ഉടൻ പൂർത്തിയാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു

ബാക്കിയുളളവർക്ക് കുറഞ്ഞ നിരക്കിൽ ഇൻ്റർനെറ്റ് ലഭ്യമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അടുത്തവർഷം ഡിസംബറോടെ പദ്ധതി പൂർത്തീകരിക്കുക യാണ് ലക്ഷ്യ മെന്ന് അദ്ദേഹം പറഞ്ഞു എല്ലാ സേവനദാതാ ക്കൾക്കും ഗവൺമെന്റ് നിയന്ത്രണത്തിൽ തുല്യമായ അവസരം നൽകുന്ന ഒപ്റ്റക്കൽ ഫൈബർ ശൃംഖല ഗവൺമെന്റ് സേവനങ്ങൾ കൂടുതൽ ഡിജിറ്റലാക്കാൻ ഇ ഹെൽത്ത് പോലെ പദ്ധതികൾ നട പ്പാക്കാൻ കഴിയുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

കൂടത്തായ് കൊലപാതകകേസിൽ ഷാജുവിന്റെ ആദ്യ ഭാര്യ സിലിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് റ്ജിസ്റ്റർ ചെയ്ത കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്താൻ താമൂർശ്ശേരി കോടതി അനുമതി നല്കി ഇന്ന് പ്രോസിക്യൂഷൻ സ്ഥമർപ്പിച്ച അപേക്ഷയിലാണ് കോടതി അനുമതി നല്കിയത്

അതിനിടെ ജോളിയുമായി ബ്ന്ധമുണ്ടെന്ന് സംശയിക്കുന്ന യുവതിയെ വടകര റൂറൽ എസ് പി ഓഫീസിൽ വിളിച്ചുവരുത്തി ക്രൈംബ്രാഞ്ച് മൊഴിയെടുക്കൽ തുടങ്ങി കൂടത്തായി ക്കാല്പാതക്കേസിലെ പ്രതികളായ ജോളിയെയും മാത്യുവിനെയും ചോദ്യം ചെയ്യലിനായി പയ്യോളി ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ചു് ഇവരുടെ ജാമ്യാപേക്ഷ താമരശ്ശേരി ഫസ്റ്റ്ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്കോടതി നാളെ പരിഗണിക്കും മരടിലെ ഫ്ളാറ്റുകൾ പൊളിക്കുന്നതിന് മുന്നോടിയായി ഫ്ളാറ്റ് ഉടമകളുടെ നഷ്ടപരിഹാരം നിർണയിക്കുന്നതിന് സുപ്രീംകോടതി നിയോഗിച്ച ജസ്റ്റിസ് കെ ബാലകൃഷ്ണൻനായർ കമ്മറ്റിയുടെ യോഗം ഇന്നും തുടരും

നെതർലാന്റസ് രാജാവ് വിലൃം അലക്സാണ്ടറും രാജ്ഞി മാക് സിമയും ആലപ്പുഴയിൽ സന്ദർശനം നടത്തി കുട്ടനാട്ടിലെ കായൽ യാത്ര ആസ്വദിക്കാനാണ് രാജാവും രാജ്ഞിയും എത്തിയത് രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് ഇന്നലെയാണ് ഇവർ എത്തിയത് വൈകിട്ട് കൊച്ചിയിൽ തിരിച്ചെത്തി പ്രത്യേകൃപ്പിമാനത്തിൽ വില്യമും മാക്സിമയും ആംസ്റ്റർഡാമിലേക്ക് മുട്ട്ങും ദക്ഷിണാഫ്രിക്കക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ മൂന്നാം ജയം തേടി ഇന്ത്യ നാളെ റാഞ്ചിയിൽ കളിക്കാന്നിറങ്ങും മൂന്നാമത്തെയും അവസാനത്തെയും ടെസ്റ്റ് ഝാർഖണ്ഡിലെ ക്രിക്കറ്റ് അസോസി യേഷൻ സ്റ്റേഡിയത്തിലാണ് വിശാഖപ്പട്ടണത്തും പൂനെയിലും വിജയിച്ച ആത്മവിശാസവുമായാണ് ടീം ഇന്ത്യ നാളെ ക്രീസിലി റങ്ങുക ഐ എസ് എൽ ഫുട്ട്ബോളിന്റെ ആറാം പതിപ്പിന് മറ്റന്നാൾ കൊച്ചി ജവഹർലാൽ നെഹ്രു സ്റ്റേഡിയത്തിൽ തുടക്കമാകും കേരള ബ്ലാസ്റ്റേഴ് സും കൊൽക്കത്ത എ ടി കെയും തമ്മിലാണ് ആദ്യ മത്സരം

ഉദ്ഘാടന ചട ങ്ങിലെ മുഖ്യാതിഥി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മുൻ നായകനും നിയുക്ത പ്രസിഡന്റുമായ സൌരവ് ഗാംഗുലിയാണ്

വനിതാ വിഭാഗത്തിൽ പി വി സിന്ധു വും പൂരുഷ വിഭാഗത്തിൽ ബി

സംസ്ഥാനത്ത് ഇന്നും കനത്തമഴയ്ക്ക് സാധ്യതയെന്ന് കാലാ വസ്ഥാ നിരീക്ഷണകേന്ദ്രം മുന്നറിയിപ്പ് നൽകി

നാളെ ഏഴ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് മലപ്പുറം ഇടുക്കി എറണാകുളം കോട്ടയം പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലാണ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്

തെക്ക് കിഴക്ക് അറബിക്കടലിലും ആതിനോട് ചേർന്ന കേരള ലക്ഷ്യദ്വീപ് തീരങ്ങളിലും മത്സ്യത്തൊഴ്ചിലാളികൾ കടലിൽ പോകരുതെന്നും നിർദേശിച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ മഴയെ തുടർന്ന് മുൻകരുതൽ നടപടി യുടെ ഭാഗമായി കൊയിലാണ്ടി അവിട്ടന്ല്ലൂർ തൃക്കുറ്റിശ്ശേരി ജിയുപി സ്കൂളിൽ ക്യാമ്പ് ആരംഭിച്ചു

കലിക്കറ്റ് സർവകലാശാല ഗോൾഡൻ ജൂബിലി ലൈഫ് സയൻസ് ബ്ലോക്കിന്റെയും അനിമൽ ഹൌസിന്റെയും ഉദ്ഘാടനം നാളെ ഗവർണർ ആരിഫ് മുഹമ്മദ്ഖാൻ നിർവ്വഹിക്കും ഗവേഷ കർക്കും വിദ്യാർത്ഥികൾക്കും ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തു ന്നതിനാണ് അനിമൽ ഹൌസ് നിർമ്മിച്ചിട്ടുളളത് തുടക്കത്തിൽ സർവ കലാശാല്യവിദ്യാർത്ഥികൾക്ക് മാതാരം ലഭിക്കുന്ന അനിമൽ ഹൌസ് സേവനം ക്രമേണ് അഫിലിയേറ്റഡ് കോളജ് വിദ്യാർത്ഥികൾക്കും ലഭ്യമാവും

വയനാട് ജില്ലയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മിഷൻ ഉദ്യോ ഗസ്ഥർ പര്യടനം ആരംഭിച്ചു സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുകയെന്ന എന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലയിൽ രണ്ടുദിവസത്തെ പര്യടനം ദേശീയ മിനുഷ്യാവകാശ കമ്മിഷൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ മുകേഷ് കുമാർ ഡിവൈ

കാരക്കാമഠം അധികൃതർക്കെതിരെ സിസ്റ്റർ ലൂസി നൽകിയ പരാ തികൾ പിൻവലിക്കണമെന്ന് മദർ സുപ്പീരിയർ ആവശ്യപ്പെട്ടു പരാ തികൾ പിൻവലിച്ചില്ലെങ്കിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കു മെന്ന് മദർ സുപ്പീരിയർ അറിയിച്ചു അതേസമയം സഭാ നേതൃത്വം തന്നോട് മാപ്പുപറഞ്ഞാൽ അവർക്കെതിരെ നൽകിയ പരാതി പിൻവലിക്കാമെന്ന് സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ സ്വകാര്യചാനലിനോട് പറഞ്ഞു തെറ്റുചെയ്യാത്ത തന്നെ ഒറ്റപ്പെടുത്തുകയാണെന്നും താൻ ഒരിക്കലും മാപ്പുപറയി ല്ലെന്നും അവർ വ്യക്തമാക്കി കേരളകലാമണ്ഡലം ഭരണസമിതിഅംഗം വള്ളത്തോൾ വാസന്തി മേനോൻ അന്തരിച്ചു

കണ്ണൂർ ജില്ലയിലെ കേളകം രാമച്ചി പട്ടിക വർഗ കോളനിയുടെ സമഗ്ര പുരോഗതിക്ക് പദ്ധതി തയ്യാറാക്കാൻ ജില്ലാ കലക്ടർ ടി വി സുഭാഷ് ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി ഇതിനു മുന്നോടിയായി കോളനിയിലെ ഓരോ വീട്ടിലെയും സാമ്പത്തിക ആരോഗൃ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ നേരിട്ട് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പട്ടികജാതി വികസ്തു വകുപ്പിനെ ചുമതലപ്പെടുത്തി